ശബരിമല സുപ്രീംകോടതി വിധി ഗ്ദവി നടപ്പാക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘപൻ കഴിഞ്ഞ സാമ്പത്തികവർഷം ക്ഷേത്രങ്ങൾക്ക് ഗവ

സിപിഐഎം നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും

കേന്ദ്ര സഹായത്തിന് പുറമെ വിദേശ സഹായവും പുതിയ സാങ്കേതിക വിദ്യയും നവ കേരള സൃഷ്ടിക്ക് വേണ്ടിവരുമെന്ന് ഇന്നലെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കരടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

കുട്ടനാടിന്റെ സംരക്ഷണത്തിന് മാസ്റ്റർ പ്ലാൻ വേണമെന്നും റിപ്പോർട്ടിൽ നിർദേ ശമുണ്ട് പ്രളയക്കെടുതിയിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം കണ്ടെത്തി വീട് നിർമിക്കാൻ ജില്ലാകലക്ടർമാർ സ്വീകരിക്കേണ്ട നടപടികൾക്ക് മാർഗരേഖ പുറപ്പെടുവിച്ചു പരിസ്ഥിതിലോല പ്രദേ ശങ്ങളും വീട് നിർമാണത്തിന് അനുമതി നൽകാനാവാത്ത പ്രദേശ ങ്ങളും നിർണയിച്ച് ആ മേഖലയിൽ കഴിയുന്നവരെ മാറ്റി പാർപ്പി ക്കാൻ കലക്ടർമാർ പദ്ധതി രൂപീകരിക്കും സ്വന്തമായി ഭൂമി വാങ്ങാ നാവാത്തവർക്ക് ഗവൺമെന്റിന്റെയും പൊതുമേഖ്ലാ സ്ഥാപനങ്ങ ളുടെയും ഉടമസ്ഥതയിലെ ഉപയോഗിക്കാത്ത്രഭൂമി പതിച്ച് നൽകും സ്ഥലം ലഭിക്കാത്ത ഇടങ്ങളിൽ ഭവനസൃമുച്ചയ നിർമാണത്തിനും അനുമതിയുണ്ട് ശബരിമലയിൽ പ്രായം നോക്കാത്പെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതിവിധി ഗ്രവ് നടപ്പാക്കുമെന്ന് എൽഡി എഫ് കൺവീനർ എ വിജയരാഘപ്പൻ തിരുവനന്തപുരത്ത് വ്യക്ത മാക്കി

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നിവിടങ്ങളിലെ വിശ ദീകരണയോഗങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും എസ് എൻഡിപി അട്ക്കം സംഘടനകളെ ഇക്കാര്യത്തിൽ ഒപ്പം കൂട്ടുന്ന കാര്യം മുന്നണി പരിഗണിക്കുമെന്നും കൺവീനർ പറഞ്ഞു ശബരി മല വിധിയുടെ പേരിൽ രണ്ടാം വിമോചനസമരത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും വിജ യരാഘവൻ അറിയിച്ചു സുപ്രീംകോടതി വിധിയുടെ മറവിൽ ബിജെപിയും ആർഎസ് എസും കോൺഗ്രസും ചേർന്ന് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമി ക്കുകയാണെന്നും എൽഡിഎഫ് കൺവീനർ ആരോപിച്ചു ശബരിമല ഉൾപ്പെടെ ഒരു ക്ഷേത്രത്തിന്റെയും പണം സംസ്ഥാന ഗവ എടുക്കുന്നില്ലെന്നും അതേസമയം ക്ഷേത്രങ്ങൾക്ക് ഓരോ വർഷവും ഗവ സാമ്പത്തിക സഹായം നൽകാറുണ്ടെന്നും മന്ത്രി കടകംപളളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങൾക്ക് തയ്യാറെടുപ്പ് നട ത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നാലേകാൽ ക്വോടി രൂപ അനുവ ദിച്ചതായി മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു ശബരിമല ഇട ത്താവളങ്ങളിൽ ആവശ്യമായ സൌകര്യങ്ങളൊരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദേശം നൽകിയത്വായും മ്യന്തി തിരുവനന്ത പുരത്ത് അറിയിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രവേശ്ന് വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നാമജപ യജ്ഞം നടത്തും രാവില്ല ഒൻപത് മുതൽ വൈകീട്ട് ആറുവരെയാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു അമ്പ ലപ്പുഴ ആലങ്ങാട്ട് സുംഘങ്ങൾ തിരുവാഭരണ വാഹക സ്വാമിമാർ തുടങ്ങിയവർ പങ്കെടുക്കും അന്താരാഷ്ട്രി ഹിന്ദു പരിഷത്ത് നേതൃത്വം നൽകുന്ന ശബരി മല സംരക്ഷണ്ഡസമിതിയുടെ ശബരിമല രക്ഷായാത്ര പന്തളത്തു നിന്ന് തുടങ്ങി യാത്ര മറ്റന്നാൾ തിരുവന്തപുരത്ത് സമാപിക്കും ശബരിമല വിധി മറികടക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവ കൾ നിയമനിർമാണം നടത്തണമെന്ന് എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെളളാപ്പളളി നടേശൻ ആവശ്യപ്പെട്ടു മുന്നോക്ക ക്കാർക്ക് അർഹമായതിനപ്പുറം ആനുകൂല്യം നൽകിയ ഇടതു ഗവ ശബരിമല വിഷയത്തിലെ പ്രതിഷേധം ഇരന്നു വാങ്ങിയതാണെന്ന് യോഗം കൌൺസിലിന് ശേഷം വെളളാപ്പളളി പറഞ്ഞു വിശ്വാസി കളായ സ്ത്രീകളാരും ശബരിമലയിൽ പോകില്ലെന്നും അതിനാൽ സുപ്രീംകോടതി വിധിക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം വിലയി രുത്തി കോടതിവിധിക്കെതിരെ തെരുവിൽ നടത്തുന്ന സമരം നാട്ടിൽ കലാപമുണ്ടാക്കാനാണെന്നും എസ്എൻഡിപി യോഗം അംഗീക രിച്ച പ്രമേയം കുറ്റപ്പെടുത്തി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പ ളളി രാമചന്ദ്രൻ കണ്ണൂരിൽ വ്യക്തമാക്കി ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് അദ്ദേഹം അറിയിച്ചു യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ വരും ശബരിമലയിലെ ആചാരങ്ങൾ പാലിക്കാ്ൻ ബാധ്യസ്ഥരാ ണെന്നും മുല്ലപ്പളളി മാധ്യമങ്ങളോട് പറഞ്ഞു

മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഇക്കാര്യത്തീൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്ന് അദ്ദേഹ്യതിരു്വനന്തപുരത്ത് ആവശ്യപ്പെട്ടു അനുമതി പിൻവലിച്ച തുകൊണ്ട് മാത്രം കുറ്റം കുറ്റമല്ലാതായി മാറില്ലെന്നും ചെന്നിത്തല പറഞ്ഞു

മുഖ്യ മന്ത്രി പിണറായി വിജയനാണ് മുഖ്യ രക്ഷാധികാരി മന്ത്രി എ കെ ബാലൻ ഫെസ്റ്റിവൽ പ്രസിഡന്റും പ്രളയദുരന്തം മുൻനിർത്തി ചിലവ് ചുരുക്കിയാണ് ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നതെന്നും സാംസ്കാരിക മാന്ദ്യം ഒഴിവാക്കാ നാണിതെന്നും മന്ത്രി എ കെ ബാലൻ അറിയിച്ചു ഇത്തവണ ചല ച്ചിത്രോത്സവത്തിൽ സൌജന്യ പാസ്സുകൾ ഉണ്ടായിരിക്കില്ല

ഷൊർണൂർ എംഎൽഎ പി കെ ശശി ക്കെതിരായ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നേതൃയോഗങ്ങ ളുടെ പരിഗണനയ്ക്ക് വന്നേക്കും കേരള ഹൈക്കോടതിയിലേക്ക് അഞ്ച് പുതിയ ജഡ്ജിമാരെ നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയും ശുപ്പാർശ ചെയ്തു ജില്ലാജഡ്ജിമാരായ ടിവി അനിൽകുമാർ ്എൻ അനിൽകുമാർ ഹൈക്കോടതി അഭിഭാഷകരായ വി ജി അരുൺ എൻ നഗരേഷ് പി വി കുഞ്ഞികൃഷ്ണൻ എന്നിവരെ നീയമിക്കാനാണ് കൊളീ ജിയത്തിന്റെ ശുപാർശ

ഇന്ത്യാ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഹൈദരാബാ ദിൽ തുടങ്ങും ആദ്യ ടെസ്റ്റ് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു

വിരാട് കോഹ്ലിയാണ് ക്യാപ്റ്റ്ൻ

ദിനേശ് കാർത്തി ക്കിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി നവംബർ ഒന്നിന് തിരുവനന്ത പുരത്ത് നടക്കുന്ന അവസാന മത്സരമടക്കം മാച്ചുകളിലെ ടീമിനെ പീന്നീട് പ്രഖ്യാപിക്കും പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വരുമാനം നേടുന്നതിന് ലേൺ ആന്റ് ഏൺ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഡോ കെ ടി ജലീൽ അറിയിച്ചു

നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തന്റങ്ങൾക്ക് ഗവ എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖ്രൻ അറിയിച്ചു കേരള സർവകലാശാലയുടെ വാമനപുരം കല്ലട് നദീ പുനഃരുദ്ധാരണം പരിപാടിക്ക് മുന്നോടിയായി പ്രോഗ്രാം ഓഫീസർമാരുടെയും വള ണ്ടിയർമാരുടെയും ത്രിദിന പരിശ്വീലന പരിപാടി ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി കാസർകോട് മഞ്ചേശ്വരം അടക്കം മണ്ഡലങ്ങളിൽ ബിജെപിക്ക് സഹായകമായ നിലപാടുകളാണ് സിപിഐഎമ്മിന്റെതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സ്ക്രെട്ടറി കെപിഎ മജീദ് കുറ്റപ്പെടുത്തി വാക്കിൽ ബിജെപിയെ എതിർക്കുകയും പ്രവൃത്തിയിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്ന സിപിഐഎം മുസ്ലിം ഭൂരിപക്ഷ പ്രദേ ശ ങ്ങളിൽ പ്രപശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും മജീദ് കാസർകോട്ട് പറ്ഞ്ഞു വിദ്ധേഷത്തിന്റെ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടേതെന്ന് കെപി സിസി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു പുരോഗതി നേടിയ ഇന്ത്യയെ എല്ലാ മേഖലയിലും തകർക്കുന്ന നട പടികളാണ് പ്രധാനമന്ത്രിയുടെതെന്നും കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യവെ മുല്ലപ്പളളി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ പ്രളയദുരിതാശ്വാസ ബാധിതർക്ക് ഗവ

കാസർകോട് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ മുടങ്ങിയ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സംസ്ഥാനതല രക്ഷാകർതൃ സംഘടന പെയ്ഡ് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും സന്ദേശം അയച്ചു ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യ ത്തിൽ കേന്ദ്ര ക്ഷേമ പദ്ധതികളെകുറിച്ച് ഇന്ന് ചേറൂരിൽ ബോധ വൽക്കരണ പരിപാടി സംഘടിപ്പിക്കും തൃശൂർ ക്രോർപറേഷൻ മേയർ അജിതാ ജയരാജൻ പരിപാടി ഉദ്ഘാടനും ചെയ്യും നിയമസഭാ പരിസ്ഥിതി സമിതി ഇന്ന് പാല്ക്കാട് ജില്ല സന്ദർശി ക്കും പോത്തുണ്ടി ഡാം മലമ്പുഴ അക്ടത്തേത്തറ എന്നിവിടങ്ങൾ സമിതി സന്ദർശിക്കും രാവിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പൊതുപ്രവർത്തകരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും സമിതി തെളിവെടുക്കും ഇടുക്കി ജില്ലയിലെ മൂന്ന് റ്റോഡ്ുകൾക്ക് കേന്ദ്ര റോഡ് നിധി യിൽ നിന്ന് ദാ കോടിരൂപ്പ അനു്വദിച്ചതായി ജോയ്സ് ജോർജ്ജ് എംപി അറിയിച്ചു